ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരായ ലൈംഗികപീഡന പരാതി സംബന്ധിച്ച കേസ് സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗ ണിക്കും പൊതുതിരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലത്തിൽ അഞ്ച് ബൂത്തുകളിലെ വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണിയാൽ മതിയെന്ന വിധി യ്ക്കെതിരേ സുപ്രീംകോടതിയിൽ റിവ്യുഹർജി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ നാളെ നാമനിർദ്ദേ ശപത്രിക നൽകും കേരളതീരത്ത് ഇന്ന് അർധരാത്രിവരെ ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം ദോഹ ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ പി

ചിത്രയ്ക്ക് സ്വർണം അന്തർസംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകളുടെ ചട്ടലംഘനം പരിശോധി ക്കാനും പരിഹാരനടപടികൾ സ്വീകരിക്കാനും മന്ത്രി എ

ശശീന്ദ്രൻ വിളിച്ച ഉന്നതതലയോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും സംസ്ഥാന പോലീസ് മേധാവിയും ഗതാഗതവകുപ്പ് കമ്മീഷണറും കെ എസ്

ടി സി മാനേജിങ് ഡയറക്ടറും ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗ ത്തിൽ പങ്കെടുക്കും

സുരേഷ് കല്ലട കമ്പനിയുടെ ബസ്റ്റിൽ യാത്രക്കാരെ ജീവനക്കാർ മർദ്ദിച്ച സംഭവത്തെത്തുടർന്നാണ് ഗവൺമെന്റ് പ്രശ്നത്തിൽ സജീവമായി ഇടപെടുന്നത് അന്തർസംസ്ഥാന ടൂറിസ്റ്റ് സ്ഥകാര്യ ബസ്സുകൾക്കെതിരേ സംസ്ഥാന വ്യാപകമായി മോട്ടോർവാഹന വകുപ്പ് പരിശോധന നടത്തി

ഇവരിൽനിന്ന് നാൽപതിനായിരം രൂപയോളം പിഴചുമ ത്തി നാൽപതോളം ബുക്കിങ് ഓഫീസുകൾക്ക് ലൈസൻസ് ഹാജരാ ക്കാൻ നോട്ടീസും നൽകി

ട്രാൻസ്പോർട്ടിങ് കമ്പനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഡി

പദവി യിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അമ്പേഷിക്കണമെന്നും കമ്മിഷൻ നിർദ്ദേ ശിച്ചു എറണാകുളം ജില്ലാ പോലീസ് മേധാവിക്കാണ് ഇതിന്റെ ചുമത ല ഗതാഗത കമ്മിഷണറും എറണാകുളം ജില്ലാ പോലീസ് മേധാവിയും മൂന്നാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നും കമ്മിഷൻ ആവശ്യപ്പെട്ടു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിക്കെതിരായ ലൈംഗിക പീഡന പരാതി സംബന്ധിച്ച കേസ് സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണി ക്കും ആരോപണത്തിന് പിന്നിൽ ഗൂഡാലോചനയുണ്ടെങ്കിൽ അതിന്റെ അടിവേരുവരെ അന്വേഷിച്ച് കണ്ടെത്തുമെന്ന് ജസ്റ്റിസ് അരുൺമിശ്ര അധ്യക്ഷനായ ബെഞ്ച് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ചീഫ് ജസ്റ്റി സിനെതിരെ നീങ്ങാൻ ചിലർ സമീപിച്ചെന്ന് അവകാശപ്പെട്ട അഭിഭാഷ കൻ ഉത്സവ് സിങ് ബെയിൻസ് മുദ്രവെച്ച കവറിൽ സമർപ്പിച്ച വിവര ങ്ങൾ ഗൌരവമേറിയതാണെന്നും കോടതി നിരീക്ഷിച്ചു അധിക തെളിവു കൾ ഇന്ന് ഹാജരാക്കാൻ ബെയിൻസിനോട് കോടതി ആവശ്യപ്പെട്ടു പരാതിക്കാരിയോട് നാളെ ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്

അൻപത് ശതമാനം ബൂത്തുകളിലെ വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണണമെന്നായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ ഈ ആവശ്യം ഉന്നയിച്ച് ഇന്നലെ സുപ്രീംകോടതിയെ സമീപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും മുതിർന്ന എൻ ഡി എ

പ്രസി ഡന്റ് നിധീഷ് കുമാർ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ ശിരോമണി അകാലിദൾ നേതാവ് പ്രകാശ് സിങ് ബാദൽ ലോക് ജനശക്തി പാർട്ടി നേതാവ് രാം വിലാസ് പാസ്വാൻ തുടങ്ങിയവർ പത്രികാ സമർപ്പണത്തിന് പ്രധാനമന്ത്രിക്കൊപ്പമെത്തും ഇന്ന് പ്രധാനമന്ത്രി വാരണാസിയിൽ റോഡ്ഷോയും സംഘടിപ്പിക്കുമെന്ന് ബി ജെ

കേന്ദ്രങ്ങൾ അറിയിച്ചു

തൂത്തുവാരുമെന്ന് കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവകാശപ്പെട്ടു ഗവൺമെന്റ് വിരുദ്ധ വികാരം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു വയനാട്ടിൽ രാഹുൽഗാന്ധി മൂന്ന് ലക്ഷ ത്തോളം വോട്ടിന് ജയിക്കുമെന്നും മുല്ലപ്പള്ളി അവകാശപ്പെട്ടു

മോക് പോൾ നടത്തിയപ്പോഴത്തെ വോട്ടുകൾ നീക്കം ചെയ്യാതെ വോട്ടെടുപ്പ് നടത്തിയതിനെത്തുടർന്നാണി ത്

റീ പോളിങിന്റെ തീയ്യതി പിന്നീട് തീരുമാനിക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ തിരുവന ന്തപുരത്ത് അറിയിച്ചു

ടിക് ടോക്ക് മൊബൈൽ ആപ്ലിക്കേഷന് മദ്രാസ് ഹൈക്കോടതി ഏർപ്പെടുത്തിയ വിലക്ക് നീക്കി നഗ്നവീഡിയോകൾ അപ്ലോഡ് ചെയ്യ രുത് എന്നതടക്കം ഉപാധികളോടെയാണ് മധുരബെഞ്ച് വിലക്ക് ഒഴിവാ ക്കിയത് നിർദ്ദേശം ലംഘിച്ചാൽ സ്വമേധയാ കോടതിയലക്ഷ്യ കേസെ ടുക്കുമെന്നും ബെഞ്ച് വ്യക്തമാക്കി കേരള തീരത്ത് ഇന്ന് അർധരാത്രിവരെ ശക്തമായ തിരമാലയ്ക്ക് സാധൃതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു ഒന്നരമുതൽ രണ്ടേകാൽ മീറ്റർവരെ ഉയരത്തിൽ തിരമാല കൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് കടൽ പ്രക്ഷുബ്ധമായിരിക്കുമെന്നാണ് മുന്നറിയിപ്പ്

ശനിയാഴ്ച മുതൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്ക ടലിലും തമിഴ്നാട് തീരുത്തും കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു

ഇപ്പോഴത്തെ വേനൽമഴയിൽ ഉച്ചയ്ക്ക് രണ്ട് മുതൽ വൈകിട്ട് എട്ടു വരെ ശക്തമായ ഇടിമിന്നൽസാധൃത നിലനിൽക്കുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറി യിപ്പ് നൽകി ഈ കാലയളവിലെ ഇടിമിന്നലിനെ സംസ്ഥാന സവിശേഷ ദുരന്തമായി അതോറിറ്റി പ്രഖ്യാപിച്ചു ഇടിമിന്നൽ തുടങ്ങുമ്പോൾതന്നെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറുകയും ജാഗ്രത പാലിക്കുകയും വേണ മെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു ശ്രീലങ്കയുടെ തെക്കുകിഴക്ക് രൂപപ്പെടുന്ന ന്യൂനമർദം തമിഴ്നാട് തീരത്ത് ചുഴലിക്കാറ്റായി മാറാൻ സാധൃത നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്ത് അടുത്ത തിങ്കളാഴ്ച മുതൽ മൂന്ന് ദിവസം വൃാപകമായ മഴയും കാറ്റും ഉണ്ടായേക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയും പെയ്തേക്കും

നാണ്യവിളകൾക്കും തന്നാണ്ട് വിളകൾക്കും വളപ്രയോഗമടക്കം കാർഷി കജോലിക്ക് ഇതോടെ തുടക്കമായി

കേളകത്ത് കോഴിഫാം തകർന്ന് ഒട്ടേറെ കോഴികൾ ചത്തു കാർഷിക വിളകൾക്കും നാശനഷ്ടമുണ്ടായി ഇന്നലെ വീശിയടിച്ച ശക്തമായ കാറ്റിൽ മരംവീണ് മലപ്പുറം വണ്ടൂർ തിരുവാലി ഗവ

സ്കൂളിന്റെ മേൽക്കൂര തകർന്നു സ്കൂൾ മൈതാ നത്തെ കൂറ്റൻ മരമാണ് സ്കൂളിന് മുകളിലേക്ക് കടപുഴകി വീണത് ലോകാരോഗൃ സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്ന് ലോക മലമ്പനി നിവാരണദിനം ആചരിക്കുന്നു

മലേറിയ നിവാരണം എന്നിൽ നിന്ന് ആരംഭിക്കും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം അനോഫെലിസ് ഇനത്തിൽപെട്ട പെൺ കൊതുകുകളാണ് മലേറിയ പരത്തുന്നത് ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലകളിൽ ബ്രോധവത്കരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലാതല ദിനാചരണം പുതിയാപ്പയിൽ ജില്ലാ കലക്ടർ ഉദ്ഘാടനം ചെയ്യും

ചിത്രയ്ക്ക് സ്വർണം

ഇതോടെ തുടർച്ചയായി രണ്ട് ഏഷ്യൻ മീറ്റുകളിൽ ചാമ്പ്യനാകുന്ന ആദൃ ഇന്ത്യൻതാരമായി മലയാളിയായ പി

ചിത്ര

സിന്ധുവും സൈന നെഹ്വാളും രണ്ടാം റൌണ്ടിലെത്തി വുഹാനിൽ ഇന്നലെ ജപ്പാൻ താര ത്തെയാണ് സിന്ധു തോൽപ്പിച്ചത്

ബാംഗ്ലൂരിന്റെ തുടർച്ചയായ നാലാം ജയമാണിത് ഇതോടെ അവർ പട്ടികയിൽ ഏഴാം സ്ഥാനക്കാരായി ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയായശേഷമെ ഈ വർഷത്തെ ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കൂവെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു

ഐയ്ക്കും മറ്റൊരു പോലീസുകാരനും പരിക്കേറ്റിരുന്നു വയനാട് തൊവരിമലയിലെ വനംഭൂമികൈയേറ്റം ഒഴിപ്പിച്ച നടപടി യിൽ പ്രതിഷേധിച്ച് ഭൂസമരസമിതി ഇന്നലെ വൈകിട്ട് ആരംഭിച്ച കളക്ട റേറ്റ് ഉപരോധം തുടരുന്നു ഹാരിസൺ എസ്റ്റേറ്റിനു സമീപത്തെ മിച്ചഭൂ മിയിൽ അവകാശം സ്ഥാപിച്ച് നടത്തിവന്ന ഭൂസമരം റവന്യു അധികൃ തരും പോലീസും ചേർന്ന് ഒഴിപ്പിച്ചിരുന്നു

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസില റായി ഡോ